തനിക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എം ജെ അക്ബർ

യൂറോപ്യൻ ഫോർമുല ത്രീ കിരീടം സ്വന്തമാക്കി മൈക്കിൾ ഷൂമാക്കറിന്റെ മകൻ മിക്ഷൂമാക്കറിന്

അക്ബർ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും യാതൊരു തെളിവുകളുമില്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പകർച്ചവ്യാധിപോലെയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

പൊതു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇത്തരം അടിസ്ഥാനരഹ്ഗറിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ പ്പിസ്ട്രിലെ ഗുഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്

ഇദ്ദേഹത്തിന്റെതിരെ നിരവധി വനിതാ പത്രപ്രവർത്തകരാണ് ലൈംഗ്ദിക്കാരോപണം ഉന്നയിച്ചിട്ടുള്ളത്

അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തുവന്നിട്ടുണ്ട്

ഒ യിലെ ആകാശ നടപ്പാത കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദിപ് പുരി ഇന്ന് ഉദ്ഘാടനം ചെയ്യും ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൾ ചടങ്ങിൽ സന്നിഹിതനായിരിക്കും നഗരവികസനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഞ്ച് യാത്രാസൌകരൃ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് ആകാശ നടപ്പാതയെന്ന് ശ്രീ ഹർദീപ് പുരി ട്വിറ്ററിലൂടെ അറിയിച്ചു

നാഗ്പൂരിലെ ഏകലവ്യ എകാൽ സ്കൂളിലെ ഡിജിറ്റൽവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മധ്യപ്രദേശിലെ പാർട്ടി പ്രവർത്തകരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപിയിൽ നേതാക്കന്മാരില്ല മറിച്ച് പ്രവർത്തകരാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ ജനങ്ങളോട് കോൺഗ്രസ് അനീതിയാണ് കാണിക്കുന്നതെന്ന് ശ്രീ അമിത്ഷാ ആരോപിച്ചു

പകരം മറ്റൊരു അവധി ദിവസം ക്രി്പ്ർത്തി ദിനമായിരിക്കും ചില പ്രദേശങ്ങളിൽ നാളെ വൈകിട്ട് പൂജ് വയ്ക്കുന്നതിനെ തുടർന്നാണ് ബുധനാഴ്ച അവധി നൽകുന്നുത്

സംസ്ഥാനത്താകെ നാലായിരത്തോളം പൂജാ പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത് അസമിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് ദുർഗ്ഗാ പൂജ

പൂജാ പന്തലുകളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്

പാർട്ടിയുടെ ആശയങ്ങൾ ദേശീയ പൌരത്വ പട്ടികയെക്കുറിച്ച് ബോധവൽക്കരണം പൌരത്വ ഭേദഗതി ബിൽ തുടങ്ങിയവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ബുക്ക് സ്റ്റാളുകൾ ഒരുക്കുന്നത്

ലൈംഗിക പീഡനാരോപണം നേരിടുന്ന ജോഹ്രിക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച ഭരണസമിതിയായ ഇഎഒയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ജോഹ്രിയുടെ വാദം ഭരണസമിതി നിരസിക്കുകയായിരുന്നു ജോഹ്രിക്ക് പകരം ബിസിസിഐ ആക്ടിംഗ് സെക്രട്ടറി അമിത് ചൌധരി ഐസിസി സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സിഒഎ തലവൻ വിനോദ് റോയ് പിടിഐയോട് പറഞ്ഞു

തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്ക്തിരെയോ തിരഞ്ഞെടുപ്പു സമയത്ത് ഉണ്ടാകുന്ന അഴിമതിക്കുതിരെയോ ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനാകും

മൂന്നു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇതു സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഈ മാസം രണ്ടു മുതലാണ് വാഷിംഗ്ടൺ പോസ്റ്റിലെ മാധ്യമ പ്രവർത്തകനായ ഖഷോഗിയോ കാണാതായത് ഖഷോഗി വധിക്കപ്പെടാൻ സാധൃതയുണ്ടെന്ന് ടർക്കി അറിയിച്ചിരുന്നു

എ യുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശബരിമല സംരക്ഷണയാത്ര ഇന്ന് തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമാപിക്കും ബിജെപി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധർ റാവുവും കർണാടകയിൽ നിന്നുള്ള ആറ് എം

എ മാരും സമാപന യാത്രയിൽ പങ്കെടുക്കുമെന്ന് ബി ജെപി സംസ്ഥാന വക്താവ് എം

ഈ മാസം പത്തിന് പന്തളത്തുനിന്ന് തുടങ്ങിയ യാത്ര ഇന്നലെയാണ് ജില്ലയിലെത്തിയത്

വോയ്സ് പ്രീമതീയ ഡോർ റേസിംഗ് ടീമിനായിട്ടാണ് മിക്ക് ഷുമാക്കർ മത്സരിച്ചത്

ഫൈനലിൽ ക്രെയോഷ്ട്യൂട്ട ബോർണാ കോറിക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് നൊവാക്ക് പരാജയപ്പെടുത്തിയത്

സെമി ഫൈനലിൽ റോജർ ഫെഡററെ അട്ടിമറിച്ചാണ് കോറിക് കലാശക്കളിക്ക് അർഹത നേടിയത്

പേസിന്റെ ഈ സീസണിലെ രണ്ടാമത്തെ കിരീട നേട്ടമാണിത് അമേരിക്കൻ സഹതാരം മിഗുൽ ഏഞ്ചൽ റയേസ് വരേലയുമായി ചേർന്നാണ് പേസ് കിരീടം സ്വന്തമാക്കിയത്

കഴിഞ്ഞ മാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദ്വീപ്സാണ് ഹർജി നൽകിയത് ഹർജിയിൽ കക്ഷി ചേർന്ന സംയുക്ത പ്രതിപക്ഷ പാർട്ടികളുടെ വാദവും ഫുൾബഞ്ച് കേൾക്കും പലർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ആരോപണമുണ്ട്

തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാവുന്നതാണ്

വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഗുലാം മുഹമ്മദിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കേന്ദ്രം ഒരു കൂട്ടം തീവ്രവാദികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു കേന്ദ്രത്തിലുണ്ടായിരുന്ന പോലീസുകാരെ ക്രൂരമായി മർദ്ദിച്ചതിനുശേഷമാണ് തീവ്രവാദികൾ ആയുധങ്ങളുമായി കടന്നത് പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു സംഭവത്തെക്കുറിച്ച അന്വേഷിക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടുണ്ട്

ടർക്കിയിലെ ഇസ്മീർ മേഖലയിലെ ഏഫ്പ്പേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ട്രക്കാണ് ജലാശയത്തിൽപ്പ്ക് മറിഞ്ഞത്